നികുതി സുതാര്യതയുടെ നാളുകളിലേക്കാണ് രാജ്യം നീങ്ങുന്നതെന്നും നികുതി ഭീകരതയുടെ നാളുകൾ കഴിഞ്ഞതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ശൈതൃകാലത്ത് കോവിഡ് വ്യാപനത്തിന് കൂടുതൽ സാധൃതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി

ഒഡീഷയിലെ കട്ടക്കിൽ ആദായനികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ സമുച്ചയം വിർചലായി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നികുതി സ്വീകരിക്കുന്നവർ ചൂഷകരും നികുതി നൽകുന്നവർ ചൂഷിതരും ആണെന്ന തരം കൊളോണിയൽ സങ്കല്പങ്ങളെ മാറ്റേണ്ടതുണ്ട് വിവിധ മേഖലകളിലെ നികുതി ഭാരം കുറയ്ക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും കൂടുതൽ പേരെ നികുതി സംവിധാനത്തിന്റെ ഭാഗമാകാൻ സർക്കാരിന് കഴിഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര നിയമ പെട്രോളിയം മന്ത്രിമാർ ഒഡിഷ മുഖ്യമന്ത്രി ഒഡീഷ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മറ്റ് ജഡ്ജിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു

ആസിയാൻ ഇന്ത്യ തന്ത്രപ്രധാന സഹകരണത്തിലെ പുരോഗതിയും ഗതാഗതം വൃാപാര വാണിജ്യ ബന്ധങ്ങൾ വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന മേഖലകളിലെ വളർച്ചയും ഉച്ചകോടി വിലയിരുത്തും

ടെലികോം നെറ്റ് വർക്കിംഗ് ഉൽപ്പന്നങ്ങൾ മരുന്ന് വാഹനങ്ങൾ സ്പെയർപാർട്സുകൾ തുണിത്തരങ്ങൾ ഭക്ഷ്യാല്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് പി എൽ

രാജ്യത്തെ ഉൽപ്പാദകർ ആഗോള നിലവാരം കൈവരിക്കുന്നതിനും കൈവരിക്കുന്നതിനും കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും കയറ്റുമതി വർധിപ്പിക്കുന്നതിനും തീരുമാനം സഹായകരമാകുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ മാധ്യമങ്ങളോട് പറഞ്ഞു

സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ തുക ലഭ്യമാക്കാനും പദ്ധതികൾ തടസ്സം കൂടാതെ നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനുമായി പൊതു സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ജലശുദ്ധീകരണം ജലവിതരണം ഖരമാലിന്യ സംസ്കരണം ആരോഗ്യ വിദ്യാഭ്യാസ മേഖല എന്നിവയ്ക്ക് ഈ പദ്ധതി ഗുണം ചെയ്യുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

റ്റി വീഡിയോ പ്താറ്റ്ഫോമുകളെയും ഓൺലൈൻ മാധ്യമങ്ങളെയും വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിലാക്കിയതായി കേന്ദ്ര സർക്കാർ ഇതു പ്രകാരം നെറ്റ്ഫ്ളിക്സ് ഹോട്ട് സ്റ്റാർ പ്രൈം വീഡിയോ തുടങ്ങിയവ ഇനി മുതൽ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൻകീഴിൽ ആയിരിക്കും

നിലവിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്രത്യേക നിയമമോ നിയന്ത്രണ അതോറിറ്റിയോ രാജ്യത്ത് നിലവിലില്ല എന്നാൽ അച്ചടിമാധ്യമങ്ങൾ വാർത്താചാനലുകൾ പരസ്യങ്ങൾ ചലച്ചിത്രങ്ങൾ എന്നിവയുടെ ഉള്ളടക്കം വിലയിരുത്തുന്നതിനായി പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യ അടക്കമുള്ള നിയന്ത്രണ അതോറിറ്റികൾ രാജ്യത്ത് നിലവിലുണ്ട്

തമിഴ്നാട് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ ആണ് പുരസ്കാരം സ്വന്തമാക്കിയത്

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മിശ്രീ വിജയ ചില സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ കൂടുകയും പരിശോധന കുറയുകയും മരണനിരക്ക് വർധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രി ഇന്ന് യോഗം വിളിച്ചു ചേർത്തത്

ശൈത്യകാലത്ത് വൈറസ് വ്യാപിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ ഈ ഉത്സവ സീസണിൽ ജനങ്ങൾ കൂടുതൽ ജാഗരൂകരായിരിക്കണം എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ല്കളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്

ഇറ്റലി ഫ്രാൻസ് തുടങ്ങി വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രതിദിന രോഗികളുടെ എണ്ണം ഉയർന്ന നിരക്കിലാണ്

എട്ട് സീറ്റുകൾ മറ്റുള്ളവർ സ്വന്തമാക്കി

ഡി

അതോടൊപ്പം ബീഹാറിലെ വാൽമീകി നഗർ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജെഡിയു സ്ഥാനാർഥി സുനിൽ കുമാർ മഹാതോ വിജയിച്ചു

ജെ

ജെ

ജെ പി വിജയിച്ചു

സംസ്ഥാനത്ത് പരിസ്ഥിതി സൌഹൃദ പടക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ആന്ധ്ര പ്രദേശ് ഭരണകൂടം നേരത്തെ വ്യക്തമാക്കിയിരുന്നു

ദീപാവലി ആഘോഷത്തിനായി തദ്ദേശീയമായി നെയ്തെടുത്ത വസ്ത്രങ്ങളും കരകൌശല ഉത്പന്നങ്ങളും വാങ്ങാൻ ശ്രമിക്കണമെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി സ്മൃതി ഇറാനി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു